കേന്ദ്രത്തിൽ രണ്ടാം എൻ

എ മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം

ജെ

ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി സൂചന മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം

തുടക്കം

എ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സത്യവാചകഠ മന്ത്രിമാർക്കും ചൊല്ലിക്കൊടുക്കും ബംഗ്ലാദേശ് ശ്രീലങ്ക കിർഗിസ് റിപ്പബ്ലിക് മൃാൻമർ എന്നീ രാജൃങ്ങളുടെ പ്രസിഡന്റുമാരും മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരും തായ്ലന്റിന്റെ പ്രത്യേക പ്രതിനിധിയും ചടങ്ങിൽ സംബന്ധിക്കും പ്രമുഖ രാഷ്ട്രീയകക്ഷി നേതാക്കളും ഒട്ടേറെ നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും മാധ്യമ പ്രവർത്തകരും സന്നിഹിതരാകും

രാഷ്ട്രപതിഭവന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് അല്പസമയത്തിനകം നടക്കുന്നത്

ജെ

ജെ പി കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ആന്ധ്രയിലെ പാർട്ടി പ്രവർത്തനത്തിന്റെ മേൽനോട്ടച്ചുമതല വഹിച്ചു വരികയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ പൊതുരംഗത്ത് പ്രവേശിച്ച ശ്രീ മുരളീധരൻ പരിഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു വാജ്പേയ് ഗവൺമെന്റിന്റെ കാലത്ത് മുരളീധരൻ നെഹ്റു യുവ കേന്ദയുടെ ഡയറക്ടർ ജനറൽ പദവി വഹിച്ചിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെ ് വിദ്യാർത്ഥികളെ അണിനിരത്തുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി

റെയിൻബോയിലും ശ്രോതാക്കൾക്ക് തൽസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് കേൾക്കാനാകും

അടുത്തമാസം ഒന്നുമുതൽ ചരക്കുകളുടെയും ഉസ്പുന്ങ്ങളുടെയും അടിസ്ഥാനവിലയിൽ ഒരു ശതമാനം സെസ്സ് പിരിക്കാനായിരുന്നു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത് ഇപ്പോഴത്തെ രീതിയിൽ സെസ് നടപ്പാക്കിയാൽ അതിനുമേൽ നികുതി നൽകേണ്ടി വരും പ്രളയ സെസിന് നികുതി ബാധകമല്ലെന്ന് ജി

ടി കൌൺസിൽ വിജ്ഞാപനം പുറത്തിറക്കേണ്ടതിനാലാണ് സെസ് പിരിക്കുന്നത് ജൂലൈ ഒന്നിലേയ്ക്ക് മാറ്റിയത്

സി

ഇതിന്റെ ഭാഗമായി ജില്ലയിലെ ആറ് താലൂക്ക് ഓഫീസുകൾക്കു മുമ്പിൽ ശനിയാഴ്ച കൂട്ടധർണ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിനായുള്ള ലേലം ജൂൺ മൂന്നിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനവും വിശദാംശങ്ങളും ധനവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് മന്ത്രിസഭായോഗം പ്രിസൺസ് ആന്റ് ക്കറക്ഷണൽ സർവ്വീസസ് വകുപ്പിലെ നോൺ ഗസ്റ്റഡ് ് എക്സിക്യൂട്ടീവ് വിഭാഗം ജീവനക്കാർക്ക് അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ വൃക്തിഗത റാങ്കിംഗ് അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഉയർന്ന തസ്തികകളിലേക്ക് പ്രൊമോഷൻ ലഭിക്കാതെ ദീർഘകാലം തുടരുന്ന ജീവനക്കാരാണ് ഇവർ ജയിൽ വകുപ്പിലെ താഴെ തട്ടിലുള്ള ജീവനക്കാരിൽ ആത്മവീര്യം വർധിപ്പിക്കാൻ ഉതകുന്നതാണ് അധിക സാമ്പത്തിക ബാധ്യതയില്ലാത്ത നടപടിയെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴി്യുന്ന മലപ്പുറം തെന്നല കുളത്തിങ്ങൽ അബ്ദുൾ നാസറിന്റെ മകൾ ഫാത്തിമ ഷഹാനയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ്നിധിയിൽ നിന്നും മൂന്നു ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു മരട് കൊച്ചി മരടിൽ തീരദേശ പരിപാലന ചട്ടം ലംഘിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ച നാല് നിർമ്മാതാക്കൾക്ക് അവ പൊളിച്ചു മാറ്റാൻ മരട് നഗരസഭ നിർദ്ദേശം നൽകി

ഇതു സംബന്ധിച്ച് ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് അയച്ചു ഫ്ളാറ്റ് പൊളിച്ചുമാറ്റാൻ സുപ്രീംകോടതി നേരത്തേ ഉത്തരവിട്ടിരുന്നു

ഇതുമായി ബന്ധപ്പെട്ട് പ്രപ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരം കന്റോൺമെൻ ഹൌസിൽവിളിച്ച് ചേർക്കുമെന്നും ശ്രീ ചെന്നിത്തല വാർത്താകുറിപ്പിൽ അറിയിച്ചു

മീറ്റർ വരെ വേഗതയിൽ അടുത്ത മുന്നു ദിവസം ശക്തമായ കാറ്റടിക്കുവാൻ സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്സവും കാലാവസ്ഥ മോശവുമായതിനാൽ മത്സൃതൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

രോഗം പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു

ഇതര സംസ്ഥാനത്തൊഴിലാളികളിലാണ് മില്ലേറിയ സ്ഥിരീകരിച്ചത്

ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആന്റ് വീഡിയോ പാർക്കിലുള്ള മാജിക് പ്ലാനറ്റിലാണ് ഭിന്നശേഷിക്കുട്ടികൾക്ക് കലാവതരണത്തിനുള്ള സ്ഥിരം വേദി തയ്യാറാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

ഇതിന്റെ ത്റക്കല്ലിടൽ നാളെ ഉച്ചതിരിഞ്ഞ് മന്ത്രി കെ

സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി ഭിന്നശേഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഡിസ്പ്പേ പ്രോഗ്രാമിലൂടെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുക

നേരത്തെ ജൂൺ മൂന്നിന് തുറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ചെറിയ പെരുന്നാൾ നാലിനോ അഞ്ചിനോ ആകാൻ സാധൃതയുള്ളതിനാൽ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ആറിലേക്ക് മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കൾ മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു

ലണ്ടനിലെ ഓവലിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുകയാണ് ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

വിവരാവകാശ കമ്മീഷ്ണർ നിയമം പാലിക്കേണ്ട പോലീസ് നിയമ വിരുദ്ധമായി പെരുമാ റുന്നത് സമൂഹത്തിന് നല്ല പാഠം നൽകില്ലെന്ന് സംസ്ഥാന വിവ രാവകാശ കമ്മീഷണർ ഡോ

വിവേകാനന്ദൻ കണ്ണൂ രിൽ വിവരാവകാശ കമ്മീഷന്റെ അദാലത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാസഞ്ചർ ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്കും തിരിച്ചും ഉള്ള പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവെ അടുത്ത ആറുമാസത്തേക്ക് കൂടി റദ്ദാക്കി

ഇന്നലെ ക്ളിഫ് ഹൌസിലെത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്

ഉഷ്ണക്കാറ്റ് തമിഴ്നാട്ടിലെ തിരുച്ചി കാരൂർ ഡിണ്ടിഗൽ അരിയാലൂർ പേരാമ്പലൂർ തഞ്ചാവൂർ നാഗപട്ടിണം പുതുക്കോട്ടൈ ജില്ലകളിൽ അടുത്ത രണ്ടു ദിവസം ഉഷ്ണക്കാറ്റ് ശക്തമാകാൻ സാധൃതയെന്ന് കാലാവസ്ഥാ വിഭാഗം പകൽ താപനില നാല് മുതൽ ആറ് ഡിഗ്രി വരെ കൂടിയേക്കാം ജനങ്ങൾ കഴിയുന്നതും യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്

ഐ എസ് എഫ് ദക്ഷിണ സെക്ടറിനു കീഴിലെ യൂണിറ്റുകളിൽ നിന്നു വിരമിച്ച ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിന് പെൻഷൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു